അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ടൌട്ടെ ചുഴലിക്കാറ്റായി മാറി

നാല് ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ത ഇസ്രയേലിൽ ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ച സൌമ്യ സന്തോഷിന്റെ മൃതദേഹം ഇന്ന് കൊച്ചിയിൽ എത്തിക്കും

ടൌട്ടെ ചുഴലിക്കൊടുങ്കാറ്റിന്റെ സ്വാധീനത്താൽ കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്

പാലക്കാടും തിരുവനന്തപുരവും ഒഴികെ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം രാവിലെ ടൌട്ടെ ചുഴലിക്കാറ്റായി മാറി ഓഡിയോ ഇന്നലെ കൊല്ലം ആലപ്പുഴ ഇടുക്കി തൃശൂർ മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴയും കാറ്റുമുണ്ടായി തീരമേഖലയിൽ പലയിടത്തും കടലാക്രമണവും രൂക്ഷമായി നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറുകയതിനെ തുടർന്ന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി

കൊല്ലം ജില്ലയിൽ രണ്ട് ദിവസമായി പെയ്ത മഴ മൺട്രോത്തുരുത്തിനെയാണ് ഏറ്റവുമധികം ബാധിച്ചത് കിടപ്രം പെരുങ്ങാലം പട്ടംതുരുത്ത് നെന്മേനി തുടങ്ങിയ പ്രദേശങ്ങളിലെ വെള്ളം കയറി

പ്രകൃതി ക്ഷോഭത്തിന്റേയും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റേയും പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിലെ എല്ലാ താലൂക്ക് പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളും ആരോഗ്യ കേന്ദ്രങ്ങളും ഇന്നും നാളെയും തുറന്ന് പ്രവർത്തിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദേശിച്ചു കലക്ട്രേറ്റിലും ആറ് താലൂക്കുകളിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്

പൊന്നാനി തിരൂർ താനൂർ വള്ളിക്കുന്ന് പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത് പൊന്നാനി താലൂക്കിലെ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി

ഇടുക്കിയിൽ കഴിഞ്ഞ രാത്രി ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് മിക്കയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു കട്ടപ്പന മേട്ടുക്കുഴി കാവുമ്പടി പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി ഗതാഗത തടസവും ഉണ്ടായി

തൃശൂർ ജില്ലയിൽ രാത്രിയും കനത്തമഴ തുടർന്നു അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്

ക്യാമ്പുകളിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് നടത്താനും നടപടി ആരംഭിച്ചു ചാവക്കാട്ടും ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട്

എടവിലങ്ങിൽ ഒരു ക്ഷേത്രവും എറിയാട് ഒരു വീട് ഭാഗികമായും കടലാക്രമണത്തിൽ തകർന്നു നിരവധി വീടുകളിൽ വെള്ളം കയറി കടൽക്ഷോഭം രണ്ട് ദിവസം കൂടി തുടരാൻ സാധ്യയുണ്ടെന്ന സൂചനയെ തുടർന്ന് കൂടതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ച് വരികയാണ്

രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കുട്ടനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി

രുഭ ചുഴലിക്കാറ്റ് സാഹചര്യം നേരിടാൻ പശ്ചിമ തീരമേഖലയിലെ സംസ്ഥാനങ്ങൾക്ക് നാവികസേന എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്ക് വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്ര ഭൌമ ശാസ്ത്ര മന്ത്രാലയവും അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ തിങ്കളാഴ്ച്ച വരെ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

രുഭ കോഴിക്കോട് ജില്ലയിൽ ന്യൂനമർദ്ദത്തെ തുടർന്ന് കടൽക്ഷോഭം ശക്തമായ സാഹചര്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഒരു ടീം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ നിന്നും തീരങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ക്യാമ്പുകൾ തുടങ്ങും ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ബോട്ടുകൾ സജ്ജമാക്കാൻ ഫിഷറീസ് വകുപ്പിന്റെ ചുമതലപ്പെടുത്തി എലത്തൂർ മേഖലയിൽ കടലാക്രമണം രൂക്ഷമായ സ്ഥലങ്ങൾ മന്ത്രി എ

കടലാക്രമണ ഭീഷണി തടയാൻ അടിയന്തര നടപടി എടുക്കുന്നതിന് മന്ത്രി നിർദേശം നൽകി

രോഗവ്യാപന നിരക്ക് കൂടിയ തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ നാളെ അർദ്ധരാത്രി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌണായിരിക്കും എല്ലാ ജില്ലകളിലും ടെസ്റ്റ് പോസിറ്റീവിറ്റി നിരക്ക് ഉയർന്ന് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ലോക്ക്ഡൌൺ നീട്ടാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോക്ക്ഡൌണിലേക്ക് പോകാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് തിരിച്ചറിഞ്ഞ് അതിശക്തമായ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇതിന്റെ രജിസ്ട്രേഷൻ ഇന്നാരംഭിക്കും

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗ സ്ഥിരീകരണം

രുര കൊച്ചി റിഫൈനറി സ്കൂൾ ഗ്രൌണ്ടിൽ താൽക്കാലിക കോവിഡ് ചികിത്സാ കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം പ്രവർത്തന സജ്ജമായി

കോവിഡ് ആശുപത്രികളിൽ വെന്റിലേറ്ററുകൾ ലഭ്യമാക്കാൻ നിയുക്ത എംഎൽഎ മാരുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തും ഗവൺമെന്റ് ആശുപത്രികളിലെ മുഴുവൻ കിടക്കകൾക്കും ഒരാഴ്ച്ചക്കകം ഓക്സിജൻ ലൈൻ ഒരുക്കും

രുര കോവിഡ് രോഗിയെ ആംബുലൻസിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആശുപത്രി ജീവനക്കാരനെ പൊലീസ് അറസ്റ്റ് ചെയ്തു പുലാമന്തോൾ സ്വദേശി പ്രശാന്തിനെയാണ് വണ്ടൂർ സ്വദേശിയായ യുവതി നൽകിയ പരാതിയിൽ പിടികൂടിയത്

എസ് സഹകരണ ആശുപത്രിയിൽ ചികിത്സക്ക് എത്തിക്കുന്നതിനിടെയാണ് പീഡന ശ്രമം ഉണ്ടായത് ദര കൊല്ലം ജില്ലയിലെ സ്വകാര്യ സഹകരണ ആശുപത്രികളിൽ കോവിഡ് ചികിത്സാ സേവനങ്ങളുടെ നിരക്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതുജനങ്ങൾക്കും കാണാൻതക്ക വ്യക്തമായി വിധം പ്രദർശിപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദേശിച്ചു ഈ നിരക്കാണ് ഈടാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ ഉറപ്പാക്കുകയും വേണം

വിമാനത്താവളത്തിൽ കൈമാറുന്ന സൌമ്യയുടെ ശരീരം രാത്രിയോടെ വീട്ടിലെത്തിച്ച് നാളെ കീരിത്തോട് നിത്യസഹായ മാതാ പള്ളിയിൽ സംസ്ക്കരിക്കും രുഭ റേഷൻ കടകൾ വഴി ഈ മാസത്തെ ഭക്ഷ്യക്കിറ്റ് വിതരണം ഇന്നാരംഭിക്കും അന്ത്യോദയ അന്നയോജന വിഭാഗത്തിനാണ് ഇന്ന് കിറ്റ് നൽകുന്നത് മറ്റ് വിഭാഗക്കാരുടെ തീയതി പിന്നീട് അറിയിക്കും ഏപ്രിൽ മാസത്തെ കിറ്റ് വിതരണം തുടരുകയാണ് അടുത്ത മാസവും ഭക്ഷ്യക്കിറ്റ് നൽകും

രണ്ട് പേരിൽ എലിപ്പനിയും മറ്റ് രണ്ട് പേരിൽ ഷിഗല്ലയും സ്ഥിരീകരിച്ചു ദേദ ഇംഗ്ലണ്ട് പര്യടനത്തിന് ഏകദിന ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് ടീമിനെ തെരഞ്ഞെടുത്തു